ഇന്ത്യയുടെ ഐക്യത്തിനും അഖ്വണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ രാജ്യത്ത് പ്പോലീസ് സേന വിഭാഗങ്ങളെ പ്രധാനമന്ത്രിദ്ധന്റർന്ദ്രമോദി ആഹ്വാനം ചെയ്തു ഭീകരതയ്ക്കെതിരെയുള്ള വിജയകരമായ പോരാട്ടത്തിന് സേനാവിഭാഗ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ പ്രശംസ

പ്രീമിയർ ബാഡ്മിന്റൺ ലീഗിന് ഇന്ന് മുംബൈയിൽ തുടക്കമാകും ലോക ചാമ്പ്യൻ സ്പെയിനിന്റെ കരോ ളീന മാരിൻ ഇന്ത്യയുടെ പി

സിന്ധു ഉൾപ്പെടെ യുള്ള മുൻനിര താരങ്ങൾ ലീഗിൽ മത്സരിക്കുന്നു

ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ജി

ടി കൌൺസിൽ യോഗത്തിന്റേതാണ് തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ

ഇതിലേറെയും ആഡംബര ഉൽപ്പന്ന്ങ്ങളാണ്

ജൻധൻ അക്കൌണ്ട് ഉടമകളെ ബാങ്ക് സേവനങ്ങൾക്കുള്ള ജി

അതേ സമയം സിമന്റ് വാഹനങ്ങളുടെ ഭാഗങ്ങൾ എന്നിവയുടെ നികുതിക്ക് മാറ്റമില്ല

റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ജി എസ് ടി യെ സംബന്ധിച്ച് അടുത്ത കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു

ഇവയെ വേരോടെ ഒറ്റപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുജറാത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാർഷിക സമ്മേളനത്തിന്റെ സമാപനവേളയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

തീവ്രവാദത്തിന്റെ ഇരുണ്ട ശക്തികൾക്കെതിരെ ജാഗരൂകരായിരിക്കണമെന്നും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും വിശ്വാസം ജനിപ്പിക്കണ്ണമെന്നും പ്രധാനമന്ത്രി പോലീസ് ആവശ്യപ്പെട്ടു

സൈബർ കോ ഓർജിനേഷൻ സെന്ററിന്റെ പോർട്ടലും അദ്ദേഹം ഉൽഘാടനം ചെയ്തു

തീവ്രവാദികളുടെ സാന്നിധ്യം ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ജില്ലയിലെ ആറംപോര ഗ്രാമത്തിൽ നടന്ന തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് തീവ്രവാദികൾ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്

തെലങ്കാനയിൽ രക്തസംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിൽസ നൽകുന്ന മികവിന്റെ കേന്ദ്രം ഉൽഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമായിട്ടും രക്തസംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു ഇതിനു വേണ്ടി പ്രത്യേക നടപടികളെടുക്കണമെന്ന് അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റുകളോടും ഡോക്ടർമാര്കോടും ആവശ്യപ്പെട്ടു കേന്ദ്രത്തിന്റെ ആയുഷ്മാൻ ഭാര്യത്ത് പ്രദ്ധതി ജനങ്ങൾക്ക് അനുഗ്രഹമാണെന്നും അദ്ദേഹം പ്പറ്റ്ഞ്ഞു തെലങ്കാനയിലെ ഗ്രാമീണ മേഖലയിലെ ജനിങ്ങളുടെ സമ്പൂർണ ആരോഗ്യ സംരക്ഷണമാണ് കരിംനുകുറിൽ പ്രവർത്തിക്കുന്ന സെന്ററിന്റെ ലക്ഷ്യം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

ശാസ്ത്രവിഷയങ്ങളിലുള്ള ഗവേഷണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമുദ്ര വിജ്ഞാന ശാസ്ത്ര രംഗത്ത് കാരൃക്ഷമതയ്ക്കും പരിശീലനങ്ങൾക്കും വേണ്ടി യുനെസ്കോ യുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഐ

സഖ്യകക്ഷിയായ കോൺഗ്രസ് പ്രിണ്ട് മ്ന്ത്രിമാരെ മാറ്റി പുതിയ എട്ട് പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ജനതാദൾ എസ് ഒഴിവിലുള്ള രണ്ട് കാബിന്റെ്റ് മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തീരുമാനമായില്ല

രമേഷ് ജാർക്കിഹോലി ആർ ശങ്കർ എന്നിവരെയാണ് കോൺഗ്രസ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് കർണാടകയിലെ കൂട്ടുകക്ഷി ഗവൺമെന്റിന്റെ രണ്ടാമത്തെ മന്ത്രിസഭാ വികസനമാണ് ഇന്ന് നടന്നത്

വടക്കേ ഇന്ത്യയിൽ ശക്തമായി തുടരുന്ന ശീതക്കാറ്റും മൂടൽ മഞ്ഞും വിവിധ മേഖലകളിൽ റോഡ് റെയിൽ ഗതാഗത്തെ ബാധിച്ചു

കഴിഞ്ഞ നാലു വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ താപനിലയും ഇതാണ്

വടക്ക് പടിഞ്ഞാറേ ഇന്ത്യയിലൂടനീളം നിലനിൽക്കുന്നൂ ശ്രീരുക്കാറ്റാണ് ഊഷ്മാവ് ഇത്രയും കുറയാൻ കാരണമെന്നാണ് ക്യാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിഗമനം

പഞ്ചാബിലെ അദംപൂരിൽ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായ ഹിമാചൽ പ്രദേശിലെ മണാലി സോളൻ കൽപ ഡിയോബ ഭുന്താർ സുന്ദർ നഗർ മേഖലയിലും ശീതക്കാറ്റിന്റെ പ്രഭാവത്താലുള്ള കുറഞ്ഞ താപനില തുടരുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ മൻമോഹൻ സിങ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക ചാമ്പ്യൻ സ്പെയിനിന്റെ കരോളീന മാരിൻ ഇന്ത്യയുടെ പി

സിന്ധു ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങൾ ലീഗിൽ മത്സരിക്കുന്നു പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറോളം കായിക താരങ്ങൾ ലീഗിൽ പങ്കെടുക്കും

നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട ഡൽഹീ ഹൈക്കോടതി വിധി ഇതിനു തെളിവാണെന്ന് കേന്ദ്രമുന്തി രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോടു പറഞ്ഞു

നാഷണൽ ഹെറാൾഡ് കൈവശം വച്ചിരിക്കുന്ന കെട്ടിടം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒഴിയണമെന്നാണ് കോടതി ഉത്തരവിട്ടത്

ഗുജറാത്തിൽ ഗാന്ധി നഗർ ജില്ലയിലെ അദാലജ് ഗ്രാമത്തിൽ ബി ജെ

മഹിളാ മോർച്ചു ദേശീയ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു വനിതാ പ്രവർത്തകരുടെ ദ്വിദിന സമ്മേളനം രാജ്യരക്ഷാ മന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് സ്ത്രീ ശാക്തീകരണത്തിന് ബി ജെ പി എന്നും നിലകൊള്ളുമെന്നും എല്ലായ്പ്പോഴും യശസ്സ് ഉയർത്താൻ പാർട്ടി പരിശ്രമിക്കുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

മുംബൈയിൽ ഹുനാർ ഹാത്ത് പ്രദർശനോൽഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു ആദ്ദേഹം

മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസാണ് പ്രദർശ്യനും ഉൽഘാടനം ചെയ്തത്

ബീഹാറിലെ സരൺ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം

പ്രദേശത്തെ അസ്ഥിരതയ്ക്കും അരക്ഷിതാ വസ്ഥയ്ക്കും പ്രധാന കാരണം യു എസ് സാന്നിധ്യമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ബഹ് രാം ഘസേമി പറഞ്ഞു

എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തോടുള്ള ആദ്യ ഔദ്യോഗിക പ്രതികരണമാണ് ഇത്

എസ് വിന്യസിച്ചിരിക്കുന്നത്